ലോക്ക് ഡൌൺ കാലയളവിൽ പ്പോലീസ് പാസ്റ്റിന് അപേക്ഷിക്കാനുള്ള ഓൺല്ലെൻ സംവിധാനം ഇന്ന് വൈകിട്ടോടെ നിലവിൽ പ്രിം

കോവിഡ് പ്രതിരോധ് പ്രവർത്തനം താഴെത്തട്ടു മുതൽ ശക്തിപ്പെടുത്തണ്ട്മെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ് തദ്ദേൾഭൂർണ ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി

പൊതുഗതാഗതം ഉണ്ടായിരിക്കില്ല

അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കും ലോക്ക്ഡൌൺ ഘട്ടത്തിൽ പരിഭ്രാന്തരായി ഇത്തരം കടകളിൽ തിക്കും തിരക്കും ഉണ്ടാക്കരുതെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് തട്ടുകടകൾ തുറക്കില്ല എന്നാൽ ഹോട്ടലുകൾ സമൂഹ അടുക്കള ജനകീയ ഹോട്ടൽ തുടങ്ങിയ സംവിധാനങ്ങളുണ്ടാകും

പൊതുജനങ്ങൾ ലോക്ക്ഡ്ൌണ്ടുമായി സഹകരിച്ച് കോവിഡ് പ്രതിരോധത്തിൽ പങ്കാളികളാകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു

രാവിലെ മുതൽ തന്നെ പ്രധാന കവലകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ അതിർത്തികളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ചരക്ക് വാഹനങ്ങൾ ഒഴികെയുള്ള സ്വകാര്യ വാഹനങ്ങൾ പലയിടങ്ങളിലും കടത്തിവിടുന്നില്ല ഗ്രാമീണ മേഖലകളിൽ പൊലീസ് പല സംഘങ്ങളായി പട്രോളിംഗ് നടത്തുന്നുണ്ട്

അവശ്യസർവ്വീസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലോക്ഡൌൺ സമയത്ത് യാത്ര ചെയ്യുന്നത്രിന് അവരുടെ സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഉപ്പ്യോഗിക്കാം മറ്റുള്ളവർ ഓൺലൈൻ പാസ് ലഭിക്കുംവരെ സ്വയം തയ്യാറാക്കിയ സാക്ഷ്യപത്രം കയ്യിൽ കരുതണം

അടിയന്തരമായി പാസ്സ് ആവശ്യമുള്ളവർ അതിൽ പ്പാലീസ് സ്റ്റേഷനുകളിലെ എസ് എച്ച് ഒ മാരെ നേരിട്ട് സമീപിച്ച് പാസ്സിന് അപേക്ഷ നൽകാവുന്നതാണ്

കോവിഡ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് തദ്ദേശഭരണ ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർഡ് തല നിരീക്ഷണ സമിതികൾ അതാത് വാർഡുകളിലെ കോവിഡ് വ്യാപനസ്ഥിതി വിലയിരുത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ആരോഗ്യം നിരന്തരം നിരീക്ഷിക്കാൻ സംവിധാനം വേണം

പുറത്ത് പോയി വരുന്ന് മുതിർന്നവർ കുട്ടികളുമായി അടുത്ത് ഇടപഴകുന്നത് ഒഴിവാക്കണം സാമൂഹ്യമാധ്യമങ്ങളിൽ കോവിഡുമായി തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനനടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇവിടെ ആംബുലൻസിന് പകരം ഉപയോഗിക്കാവുന്ന വാഹനങ്ങൾ കണ്ടെത്തി വയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ പുന്നപ്രയിൽ കോവിഡ് നിരീക്ഷണത്തിലുളയാളെ ബൈക്കിൽ ആശുപത്രിയിലെത്തിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

എറണാകുളത്തു നിന്നും ആകാശവാണിക്കു വേണ്ടി ജോസഫ് മാർട്ടിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്

ശ്വാസംമുട്ടൽ അമിതക്ഷിീണം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തൊട്ടടുത്തി ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുമായി ബ്രസ്പ്പെട്ട് പ്രാഥമിക തല ചികിത്സാ കേന്ദ്രങ്ങളിലേയ്ക്ക് മാറേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട്

അതിഥി തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കോൺട്രാക്ടർ തന്നെ ഏറ്റെടുക്കണം

അവശ്യസാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് പ്രവർത്തനാനുമതിയുണ്ടെന്നും കളകൂർ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി

ഭരതൻ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നിമുൻ ഫൂട്ബോൾ താരവും പരിശീലകനുമായ പ്രൊഫ

ഭരതൻ നിര്യാതനായി